മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന മതപീഡനങ്ങളെ കുറിച്ച് ലോകത്തിന് മനസിലാക്കാൻ സഹായകമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപീകരിച്ച ഒമ്പതംഗ ബെഞ്ച് ഇന്നു മുതൽ വാദം ക്കൾക്കും

ന് വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയ്ക്ക് ഇന്ന് അബുദാബിയിൽ തുടക്കമാകും

ഇറാഖിലെ വ്യോമത്താവളത്തിൽ റോക്കറ്റ് ആക്രമണം

ടീമിലേയ്ക്ക് രോഹിത് ശർമയും മുഹമ്മദ് ഷമിയും തിരിച്ചെത്തി

വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് ഇന്നലെ പശ്ചിമ ബംഗാളിലെ ബേലൂർ മഠത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നിയമം സംബന്ധിച്ച തർക്കങ്ങൾ പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനങ്ങൾ ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടി

കൊൽക്കത്ത തുറമുഖം ശ്യാമപ്രസാദ് മുഖർജി ത്രുറമുഖം എന്ന പേരിൽ അറിയപ്പെടുമെന്ന പ്രഖ്യാപനവും ബംഗാൾ സ്റ്റ്ങ്ങ്ർർനത്തിനിടെ പ്രധാനമന്ത്രി നടത്തി

ഏകീകൃത ഗതാഗത നയത്തിലൂടെ ഉൾനാടൻ ജലഗതാഗതിച്ചു വികസിപ്പിക്കുന്നതിനായി ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്ക്കരിക്കുമെന്ന് പ്രധാന്നമന്ത്രി പറഞ്ഞു

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തോളം പേർ പങ്കെടുക്കും

ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം പ്രചരിപ്പിച്ച് കുട്ടികൾ നൃത്തം വയ്ക്കുന്ന വീഡിയോ പ്രചരിപ്പിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്നാണ് പരാതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എ

പി കുട്ടികളെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ബിജെപി ഡൽഹി അദ്ധ്യക്ഷൻ മനോജ് തിവാരി കുറ്റപ്പെടുത്തി

പുതിയ സുൽത്താന്റെ നേതൃത്വത്തിൽ ഒമാന്റെ വികസനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും ആഗോള സമാധാനത്തിനുള്ള ആ രാജ്യത്തിന്റെ സംഭാവന ഇനിയും മെച്ചപ്പെടുമെന്നും പ്രധാനമന്ത്രി ടിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു

രാജ്യമെമ്പാടും ഇന്ന് ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു

ഔദ്യോഗിക ആഘോഷ പരിപാടികളും ഉണ്ടായിരിക്കുകയില്ല

ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡേ നേതൃത്വം നൽകുന്ന ഒൻപത് അംഗ വിശാല ബെഞ്ചാണ് വാദം കേൾക്കുന്നത് മതസ്വാതന്ത്ര്യം സംബന്ധിച്ചു ഭരണഘടനാ വകുപ്പലെ വ്യവസ്ഥ ഭരണഘടനയിലെ വ്യവസ്ഥ ഭരണഘടനയിലെ ക്രമസമാധാനം ധാർമ്മികത തുടങ്ങിയ പ്രയോഗങ്ങളിലെ വ്യക്തത ഹൈന്ദവ വിഭാഗങ്ങൾ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം മതാചാരങ്ങൾക്ക് ഭരണഘടനാ സംരക്ഷണം നൽകിയിട്ടുണ്ടോ മുസ്സീം പാഴ്സി വിഭാഗങ്ങളിലെ വനിതകൾക്ക് ആരാധനാ കേന്ദ്രങ്ങളിൽ വിവേചനം നേരിടുന്നുണ്ടോ തുടങ്ങിയ വിഷയങ്ങളാണ് ബെഞ്ച് പരിഗണിക്കുന്നത്

അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അദ്ധ്യക്ഷനായ ഈ അഞ്ചംഗ ബെഞ്ച് മുന്നോട്ട് വച്ച വിഷയങ്ങളാണ് ഒൻപത് അംഗ ബെഞ്ച് പരിശോധിക്കുന്നത്

അഭിഷേകത്തിന് ശേഷം രണ്ടരയോടെ ഹരിവരാസനം പാടി നട അടയ്ക്കും തുടർന്ന് നാല് മണിക്ക് വീണ്ടും നട തുറക്കും

ഊർജത്തിന്റെ ഭാവി ഉപയോഗസാധ്യതകൾ ഭക്ഷണം കൃഷി തുടങ്ങി വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച പൊതു അവലോകനവും യോഗത്തിലുണ്ടാകും

കൊൽക്കത്തയിൽ ഇന്ത്യൻ തീരദേശ സേനയുടെ കപ്പലുകൾ കമ്മീഷൻ ചെയ്യുന്നതിനോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എന്നാൽ അമേരിക്ക ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം സൈനികരും താവളത്തിൽ നിന്നും മടങ്ങിയിരുന്നു

മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു വിരാട്ട് കോഹ്ലിയാണ് ക്യാപ്റ്റൻ

പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ഫാസ്റ്റ് ബൌളർ പ്രജസ്പ്രീത് ബുംറ ടീമിലേക്ക് മടങ്ങിയെത്തി

മൂന്ന് ഏകദിന മൽസരങ്ങൾ ഉൾപ്പെട്ട പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും

എൽ ഫുട്ബോളിൽ മുൻ ചാമ്പ്യൻമാരായ എ

കെ കൊൽക്കത്തയെ പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ രണ്ടാം ജയം

കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മൽസരം ജംഷഡ്പൂർ എഫ്

ഇന്ന് ആർച്ചറി അത്ലറ്റിക്സ് ജിംനാസ്റ്റിക്സ് ജൂഡോ കബഡി ഷൂട്ടിങ് ടേബിൾ ടെന്നീസ് വോളിബോൾ എന്നീ ഇനങ്ങളാണ് നടക്കുന്നത്

കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ മന്ത്രി് കെ ടി ജലീൽ നറുക്കെടുപ്പ് നിർവ്വഹിക്കും

ഇവരുടെ പേരും വിവരങ്ങളും പുറത്തു വിട്ടിട്ടില്ല ഇവരെ തമിഴ്നാട്ട് പ്ലോലീസിന് കൈമാറി